ഇന്തൃയെ ബംഗ്ലാദേശുമായി ബന്ധിപ്പിക്കുന്ന മൈത്രി സേതു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

സംഭവത്തിൽ അന്ന്യേഷ്ണത്തിന് ഉത്തരവിട്ട് കേന്ദ്രം

രാഷ്ട്രപതി രാം നാഥ് ക്യോഹിന്ദ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ന് ഇന്ന് തമിഴ്നാട്ടിൽ എത്തും

രണ്ട് കോടി ഒൻപത് ലക്ഷം കടന്നു

ഇന്ത്യ ബ്രിട്ടനെ തോൽപ്പിച്ചു

എല്ലിൽ ആദ്യമായി മുംബൈ സിറ്റി ഫൈനലിൽ

ത്രിപുരയിലെ നിരവധി അടിസ്ഥാന വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങും പ്രധാനമന്ത്രി വിദൂര ദൃശ്യസംവിധാനത്തിലൂടെ നിർവ്വഹിക്കും ത്രിപുരയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഒഴുകുന്ന ഫെനി നദിയ്ക്ക് കുറുകെയാണ് മൈത്രി സേതു എന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത്

ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി സൌഹൃദ്യ ബ്ദ്ധത്തെയാണ് മൈത്രി എന്ന പേരിലൂടെ ഉയർത്തിക്കിട്ടുന്നത്

ഇരുരാജ്യങ്ങളിലെയും ചരക്ക് യാത്രാ ഗതാഗതം സുഗമമാക്കാനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി തുറക്കാനുള്ള അവസരവും ഒരുക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡോ

ഇത് ആദ്യമായാണ് ഭഗവത്ഗീതയ്ക്ക് ഒരേസമയം ഇത്രയും വ്യാഖ്യാനങ്ങൾ വരുന്നത്

ന്യൂ കോയിലപ്പിട്ട് കെട്ടിടത്തിന്റെ പന്ത്രണ്ടാം നിലയിൽ നിന്നാണ് ദുരന്ത നിവാണ് സംഘം മൃതദേഹങ്ങൾ കണ്ടെടുത്തത്

പശ്ചിമ ബംഗാൾ സർക്കാരിന് സാധ്യമായ എല്ലാ സഹായങ്ങളും റെയിൽവേ നൽകിയിട്ടുണ്ടെന്ന് ഗോയൽ പറഞ്ഞു ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ള റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെന്നും രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിലെ രണ്ടാം പാദത്തിന്റെ ആദ്യദിനമായ ഇന്നലെ പ്രതിപക്ഷ പ്രതിഷേധത്താൽ രാജ്യസഭ ശബ്ദമുഖരിതമായിരുന്നു

വിഷയം അടിയന്തരമായി ചർച്ച ഉപ്പിയ്യ്ണ്മെന്നായിരുന്നു കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആവശൃപ്പെട്ടത്

അതിനുശേഷം പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ അവരുടെ അന്താരാഷ്ട്ര ഉൽപ്പന്ന വിലകൾ വിനിമയ നിരക്ക് നികുതി ഘടന എന്നിവയ്ക്ക് അനുസൃതമായി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മാറ്റം വരുത്തുന്നു പെട്രോളിനും മറ്റ് ഇന്ധനങ്ങൾക്കും വിവിധ രാജൃങ്ങൾ ചുമത്തുന്ന നികുതികൾക്കനുസൃതമായി അതാത് സർക്കാരുകളുടെ നയമനുസരിച്ച് കാലാകാലങ്ങളിൽ വിലയിൽ മാറ്റം വരുമെന്ന് മന്ത്രി പറഞ്ഞു

മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ നാളെ മജുലിയിൽ നാമനിർദേശ പത്രിക സമർപ്പിക്കും

ലോക്സഭയിൽ രേഖ്ലാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറ്റ്ഞ്ഞിത്

ടി മന്ത്രാലയം അറിയിച്ചു

ഡൽഹി ഗുജറാത്ത് മഹാരാഷ്ട്ര ചണ്ഡിഗഡ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിദ്യാർത്ഥികൾ

ഈ വർഷം മുതൽ വർഷത്തിൽ നാല് തവണ പരീക്ഷ നടത്തും

ഇ മെയിൻ പരീക്ഷയിലെ വിജയികളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് അഭിനന്ദിച്ചു

ഇതോടെ ആകെ ഒരു കോടി എട്ട് ലക്ഷത്തിലധികം പേർ രാജ്യത്ത് രോഗമുക്തരായതായി

ഇത്രോടെ കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിൻ കുത്തിവയ്പ്പ് സാധ്യമീക്കും

കൂടുതൽ ഡോസ് വാക്സിനുകൾ അടുത്ത ദിവസങ്ങളിൽ എത്തിക്കുമെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചതായി സംസ്ഥാന ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി

വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു

യൂറോപ്പ് പര്യടനത്തിലെ ഇന്ത്യയുടെ നാലാമത്തേയും അവസാനത്തെയും മത്സരമായിരുന്നു ഇത്

പര്യടനത്തിലെ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്

നിശ്ചിതസമയം പിന്നിടുമ്പോൾ ഗോവയും മുംബൈയും ഗോൾരഹിത സമനിലയിലായിരുന്നു

ആദ്യ പകുതിയ്ക്ക് ശേഷവും ഇരുടീമുകളും മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും ലക്ഷ്യം കാണാനായില്ല